ജെ

ഇരുസഭകളിലും ഹാജരാകണമെന്ന് ക്യാണിച്ച് ബി ജെ പി വിപ്പ് പുറപ്പെടുവിച്ചു

സാഹചരൃത്തിൽ പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്

പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് ഇന്ത്യ അൽപ്പസമയത്തിനകം ഇറങ്ങും

ഫലങ്ങൾ അപ്പപ്പോൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനമേർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലെയും ഫലങ്ങൾ പ്രത്യേകം പ്രത്യേകം അറിയാം

വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഡൽഹി പൊലീസിന്റയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും സുരക്ഷാ വലയത്തിലാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പിയുടെ പാർലമെന്റ് അംഗങ്ങൾ എല്ലാവരും ഇന്ന് ഇരുസഭകളിലും ഹാജരാകണമെന്ന് കാണിച്ച് ബി ജെ പി വിപ്പ് പുറപ്പെടുവിച്ചു കേന്ദ്ര ധനക്കാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സഭയിൽ കേന്ദ്ര ബഡ്ജറ്റ് സംബന്ധിച്ചു ചർച്ചയ്ക്ക് മറുപടി നൽകും

രണ്ടാം ഘട്ടം അടുത്ത മാസം രണ്ടിനാണ് ആരംഭിക്കുന്നത്

തൊഴിലിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള സംവരണം മൌലികാവകാശമല്ലെന്ന് സുപ്രീം കോടതി അടുത്തിടെ നൽകിയ വിധിന്യായത്തിൽ വൃക്തമാക്കിയിരുന്നു ഈ കേസിൽ കേന്ദ്ര സർക്കാർ ഒരു കക്ഷിയാവുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സാമൂഹിക നീതി മന്ത്രി തവർ ചന്ദ് ഗഹ്ലോട്ട് രാജ്യസഭയിൽ വ്യക്തമാക്കി പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെയും മറ്റ് പിന്നാക്കവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് എൻ

എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു

പ്രഥമദൃഷ്ട്യാ കേസില്ലെങ്കിൽ മാത്രമേ കോടതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകു എന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര വിനീത് ശരൺ രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ച് വൃക്തമാക്കി പ്രാഥമിക അന്വേഷണം ആവശ്യമില്ലാതെ തന്നെ എഫ്

ആർ രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും കേസെടുക്കുന്നതിന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി

സംസ്ഥാനത്ത് സമാധാനം സ്ഥാപ്പിക്ക്മെൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തേടിയ മുഖ്പൂർന്തി അടുത്തിടെ ആയുധങ്ങൾ വച്ച് കീഴടങ്ങിയ ബോഡോല്പാ്ന്റ് സംഘടനയിലെ അംഗങ്ങളെ പ്രശംസിച്ചു കലാപ രഹിത അസം എന്ന് ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ക്ലൊക്രുജ്ഹറിൽ നടന്ന ബോഡോലാന്റ് ദിനാചരണ ചടങ്ങിൽ അദ്ദേഹം പ്ലറി്ഞു

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെയാണ് അന്വേഷണം എൻ ഐ

അന്താരാഷ്ട്ര അതിർത്തിയിലൂടെയാണ് ഭീകരർ സാംബയിലേക്ക് നുഴഞ്ഞുകയറിയത്

ജനരോഷം ശക്തമായ കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ അതിവേഗ കോടതിയിൽ വിചാരണ നടപടികൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മുംബൈയിൽ പറഞ്ഞു ഒരാഴ്ച മുൻപാണ് പെൺകുട്ടിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത്

ഇന്നലെ നടന്ന ഡിപ്പാർട്ട്മെന്റ് തല യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മദ്യകടത്തിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫലം അഞ്ച് ശതമാനമായി ഉയർത്താനും ശ്രീ പവാർ പറഞ്ഞു

കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇതു സംബന്ധിച്ച് എല്ലാം സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക മു്ൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റെക്കോർഡ് താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയതായി കേന്ദ്രകാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു

സൂര്യാഘാത സാധ്യതയും റിപ്പോർട്ടു ചെയ്യുന്നുണ്ട്

തൊഴിലാളികളും കെട്ടിടത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് സ്കൂൾ അധികൃതരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണമെന്നും വേനൽകാല രോഗങ്ങളെ കരുതിയിരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ഗർഭിണികളും കുട്ടികളും അസുഖബാധിതരായ വയോജനങ്ങളും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വ്യോമമാർഗമുള്ള ഭീഷണികൾ ചെറുക്കുന്നതിനും നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനുമാണ് സംയോജിത പ്രതിരോധ സംവിധാനം വിൽപ്പന സംബന്ധിച്ച തീരുമാനം ട്രംപ് ഭരണകൂടം അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചതിനായി യു എസ് പ്രതിരോധ സഹകരണ ഏജൻസി അറിയിച്ചു

ഇത്തരത്തിലുള്ള വൈറസുകൾ ചൂടുകാലാവ്യസ്റ്റെയ അതിജീവിക്കില്ലെന്ന് വൈറ്റ് ഹൌസിൽ ഇന്നലെ മാധ്യമപ്രവർത്തക്കുർ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു കൊറോണ വൈറസ്ട് പ്യക്ക്രുന്നത് തടയാൻ സ്വീകരിച്ച നടപടികൾക്ക് ചൈനയെയും പ്രസിഡ്ടന്റ് ഷീ ജിൻ പിങ്ങിനെയും അദ്ദേഹം അഭിനന്ദിച്ചു

പേരും വിലാസവും ഉൾപ്പെടെ ഇടപാടുകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തു

സിറിയയിലെ ഇദ്ലിബ് മേഖലയിൽ നടന്ന സ്ഫോടനത്തിൽ അഞ്ച് തുർക്കി സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് തൂർക്കി തിരിച്ചടിച്ചത് സിറിയയിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നും തുർക്കി പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ദമാസ്ക്കസും അൻകാരയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഏൽപ്പിക്കുന്നുണ്ട്

യുനാനി പണ്ഡിതനും സാമൂഹ്യ പരിഷ്ക്കർത്താവുമായ ഹക്കിം അജ്മൽഖാന്റെ ജന്മവാർഷിക ദിനമാണ് എല്ലാ വർഷവും യുനാനി ദിനമായി ആചരിക്കുന്നത് യുനാനിയിലെ പ്രതിരോധ ചികിത്സാ രീതിയിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത് ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആയുഷ് ദിനാചരണ ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് മുഖ്യാതിഥിയായിരിക്കും

അന്താരാഷ്ട്ര കായിക മത്സരങ്ങളായ ഒളിമ്പിക്സ് ക്യോമുണ്ട്ട്ട്വൽത്ത് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ലോകകപ്പ് ലോക ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെ മെഡൽ ജേതാക്കൾക്ക് പന്ത്രണ്ടായിരം മുതൽ ഇർപ്തിനായിരം രൂപ വരെ പെൻഷൻ നൽകിവരുന്നതായി കേന്ദ്രമന്ത്രി ൂർഖ്യമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു അംഗപരിമിതരായ കൃഷ്യീകതാരങ്ങൾക്കും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാകും